കേന്ദ്രമന്ത്രിമാരായ ഗിരിരാജ് സിംഗ് ബാബുൽസുപ്രിയോ ബി ജെ പി നേതാക്കളായ വസുന്ധര രാജെ പൂനം മഹാജൻ ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസ് സി

ഐ സ്ഥാനാർത്ഥി കനയ്യ കുമാർ മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥ് എൻസി

പെൻസിൽ ഇൻട്രോ ഹരിതകേരളം മിഷൻ കില കുടുംബശ്രീ മിഷൻ ആരോഗ്യ വകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയുടെ നേതൃത്വത്തിൽ അവധിക്കാലത്ത് കുട്ടികൾക്കായി പെൻസിൽ എന്ന പേരിൽ ദിദിന കൃാമ്പുകൾ സംഘടിപ്പിക്കുന്നു